രാജ്യത്ത് തിരഞ്ഞെടുപ്പുകളെല്ലാം ഒന്നിച്ചു നടത്തുന്ന കാര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും ചർച്ച നടത്തും

ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പ് ഇസ്സ് ഓം ബിർള ബി ജെ പി സ്ഥാനാർത്ഥി

പെറുവിന് ജയം

പാർലമെന്റിന്റെ പ്രവർത്തന മികവ് വർദ്ധിപ്പിക്കൽ വികസനം എന്നീ വിഷയങ്ങളും അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ ഇന്നത്തെ സർവ്വകക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി അറിയിച്ചു പകരം വിഷയം സംബന്ധിച്ച് ഗവൺമെന്റ് ധവളപത്രം പുറപ്പെടുവിക്കണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പ്രിഹ്ളാദ് ജോഷിയ്ക്കയച്ചു കത്തിൽ അവർ ആവശ്യപ്പെട്ടു

ബിജെപി എം പി ഓം ബിർള ആണ് എൻ ഡി

രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള ലോക്സഭാംഗമായ ശ്രീ

പിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ്സിംഗ് അമിത്ഷാ നിതിൻ ഗഡ്കരി എന്നിവർ അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചതായി പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ളാദ് ജോഷി അറിയിച്ചു പ്രതിപക്ഷത്തു നിന്ന് സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതില്ലെന്ന് കോൺഗ്രസ് തീരുമാനിച്ചതോടെ ശ്രീ ഓം ബിർള സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടും

എ അദ്ധ്യക്ഷ സോണിയഗാന്ധി മുലായംസിംഗ് യാദവ് മനേകാഗാന്ധി ടി

ബാലു എ രാജ ദയാനിധിമാര്യങ്ക് കനിമൊഴി കാർത്തി ചിദംബരം രാജ്യവർദ്ധൻ രാത്തോഡിച്ച് സ്ണി ഡിയോൾ മനീഷ് തിവാരി ശശിതരൂർ തുടങ്ങിയവർ ്ട് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു

തമിഴ്നാട്ടിൽ നിന്നുള്ളൂ എല്ലും എം

വീരേന്ദ്രകുമാർ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു

ഈ രോഗങ്ങളെ നേരിടാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ നിർദ്ദേശിക്കുന്നതിനാണ് വിവിധ മേഖലകളിലെ വിദഗ്ദ്ധർ ഉൾപ്പെട്ട സമിതിയെ നിയോഗിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

ആരോഗ്യ മന്ത്രാലയത്തിനുകീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥിരം സമിതി രോഗ കാരണവും പ്രതിരോധ മാർഗങ്ങളും നിർദ്ദേശിക്കണം നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൂകൺട്രോൾ എയിംസ് ഐ

ബീഹാറിലെ മുസാഫർപൂരിൽ മസ്തിഷ്കജ്വരം ബാധിച്ച് നൂറിലധികം കുട്ടികൾ മരിച്ച സാഹചര്യത്തിലാണ് കേന്ദ്രം അടിയന്തരമായി യോഗം ചേർന്നത്

അതിനിടെ രോഗബാധിതർ കൂടുതലുള്ള ശ്രീകൃഷ്ണ മെഡിക്കൽ കോളേജിൽ മികച്ച ചികിത്സ ലഭ്യമാക്കാൻ കൂടുതൽ ഡോക്ടർമാരെ നിയോഗിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു മുസാഫർപൂരിൽ ഇതുസംബന്ധിച്ച് ഇന്നലെ മുഖ്യമന്ത്രി നിതീഷ്കുമാറിന്റെ അധൃക്ഷതയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഒരാളെ കുറ്റവിമുക്തനാക്കി ഉത്തർപ്രദേശിൽ പ്രയാഗ്രാജിലെ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്

മേഖലാടിസ്ഥാനത്തിലുള്ള ജനറൽ മാനേജർ യൂണിറ്റ് പ്രൊഡക്ഷൻ ഡിവിഷണൽ റയിൽവേ മാനേജർ തുടങ്ങിയവരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്തിയ ഉന്നതതല അവലോകന യോഗത്തിലാണ് കേന്ദ്രമന്ത്രി ഇൌ ആവശ്യമുന്നയിച്ചത് സാധാരണക്കാരിൽ സാധാരണക്കാരായവർക്കും റയിൽ ഗതാഗതം ഉപയോഗിക്കാനാകും വിധം മാറ്റം കൊണ്ടുവരണമെന്ന് റയിൽവേ സഹമന്ത്രി സുരേഷ് സി അങ്കാടി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു

ഇതോടെ മേഖലയിൽ കർമനിരതരായുള്ള എല്ലാ സേനാംഗങ്ങൾക്കും റേഷൻ ലഭ്യമാകും പ്രതിരോധ വകുപ്പിന്റെയും സായുധ സേനയുടെയും അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായാണ് നടപടിയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങ്ങ് വ്യക്തമാക്കി

എഫ്

ക്ശ്മീരിലെ പരിസ്ഥിതിലോല മേഖലകളെ സംരക്ഷിക്കുന്നതിന് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും മുന്നോട്ടുവരണമെന്നും സി

എഫ് അഭ്യർത്ഥിച്ചു

വാട്സ്ആപ്പ് അടക്കമുള്ള ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ പണമിടപാട് നടത്താൻ അവസരമൊരുക്കുകയാണ് ലക്ഷ്യം പുത്തൻ ആഗോള കറൻസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലിബ്ര അടുത്ത വർഷത്തോടെ നിലവിൽവരും

സർവകലാശാലയുടെ പ്രവേശനങ്ങൾക്കായുള്ള സ്റ്റാന്റിംഗ് കമ്മിറ്റിയാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്

ദിനാചരണത്തിന് തുടക്കം കുറിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ രാജ്നിവാസിൽ ആഘോഷങ്ങൾ ആരംഭിച്ചിരുന്നു

ഇതുവരെ പരാജയം ഏറ്റുവാങ്ങാതെ മികച്ച ഫോമിലാണ് ഇന്ത്യൻ ടീം

ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാൻ എന്നീ ടീമുകളെ തോൽപിച്ചു ഇന്ത്യയ്ക്ക് ഇനി ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാൻ വെസ്റ്റിന്റീസ് ശ്രീലങ്ക എന്നീ ടീമുകളെയാണ് നേരിടാനുള്ളത് ഇന്ത്യയ്ക്കെതിരെ തോറ്റെങ്കിലും ഓസ്ട്രേലിയയും മികച്ച ഫോമിലാണ് ബംഗ്ലാദേശ് ന്യൂസിലാന്റ് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക എന്നിവർക്കെതിരെയാണ് ഇനി മത്സരം പാകിസ്ഥാനെതിരെ തോറ്റെങ്കിലും ഇംഗ്ലണ്ടും മികച്ച ഫോമിലാണ് എന്നാൽ ശേഷിക്കുന്ന നാല് മത്സരങ്ങളിൽ മൂന്നിലും ശക്തരായ എതിരാളികളെയാണ് നേരിടേണ്ടത് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള ന്യൂസിലാന്റ് ഇതുവരെയുള്ള മത്സരങ്ങളെല്ലാം ആധികാരികമായാണ് ജയിച്ചത് അഞ്ചു മത്സരങ്ങളിൽ നിന്ന് അഞ്ചു പോയിന്റുമായി ബംഗ്ലാദേശ് അഞ്ചാം സ്ഥാനത്താണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഒന്നിനെതിരെ മൂന്നു ഗോളുകൾക്കാണ് പെറു ബൊളീവിയയെ പരാജയപ്പെടുത്തിയത്